വാർത്തകൾ വിശദമായി കാർഷികോൽപ്പന്ന വ്യാപാര പ്രോത്സാഹന ബില്ലും കർഷക ശാക്തീകരണ ബില്ലും ലോക്സഭ പാസ്സാക്കി കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും കാർഷിക സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിച്ചതായും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ കേന്ദ്രമന്ത്രി നരേന്ദ്രസിങ്ങ് തോമർ അറിയിച്ചു രണ്ട് ബില്ലുകളും കൃഷി ലാഭകരമാക്കുന്നതിനു പുറമെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ സ്വാതന്ത്ര്യവും നൽകുമെന്ന് മന്ത്രി പറഞ്ഞു ബില്ലുകൾ നിയമമാകുന്നതോടെ സ്വകാര്യ നിക്ഷേപം ഗ്രാമങ്ങളിൽ എത്തുമെന്നും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നും തോമർ അറിയിച്ചു കോൺഗ്രസും ആർഎസ്പിയും ബില്ല് പാസാക്കിയതിൽ പ്രതിഷേധിച്ച് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി രുമ സംസ്ഥാനത്ത് കർഷകക്ഷേമ ബോർഡ് അടുത്ത മാസം പ്രവർത്തനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കർഷകർക്കും കുടുംബത്തിനും പെൻഷൻ ഇൻഷുറൻസ് വിദ്യാഭ്യാസ സഹായം വിധവ ധനസഹായം തുടങ്ങിയവ ബോർഡ് വഴി ലഭ്യമാക്കും

ഇന്ത്യയിലാദ്യമായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്ക്കരിച്ചത്

പ്രകൃതിക്ക് ദോഷകരമായ മരങ്ങൾ മുറിച്ചുമാറ്റി വട്ടവട കാന്തല്ലൂർ മേഖലകളിൽ ശീതകാല പച്ചക്കറി കൃഷി ആരംഭിക്കാൻ കഴിഞ്ഞത് ഗവൺമെന്റിന്റെ നേട്ടമാണ് പച്ചക്കറി കൃഷി വ്യാപനത്തിന് സംസ്ഥാനത്ത് മഴമറ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്

അവ സംഘടനകളേയോ മാത്രമല്ല ബാധിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വ്യാജ വാർത്തകൾക്കെതിരെ നടപടിയെടുക്കാൻ പൊലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനം ഒരുക്കുന്നത് ചിലരിൽ തെറ്റിദ്ധാരണക്ക് കാരണമായിട്ടുണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തെ ആരും ഹനിക്കുന്നില്ല തെറ്റ്പറ്റിയാൽ തിരുത്താനോ തെറ്റായ വാർത്ത കൊടുത്ത അതേ പ്രാധാന്യത്തോടെ ശരിയായ വാർത്ത കൊടുക്കാനോ മാധ്യമങ്ങൾ പലപ്പോഴും തയാറാകുന്നില്ല കോവിഡുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ ഗൌരവത്തോടെ കാണണമെന്നും ഇതിനെതിരായ നടപടികളിൽ പൂർണമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ദേദ സംസ്ഥാനത്ത് ആദ്യമായി ഇന്നലെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം നാലായിരം കവിഞ്ഞു

തൃശൂർ കണ്ണൂർ പാലക്കാട് കൊല്ലം കോട്ടയം ജില്ലകളിൽ രോഗബാധിതർ ഇരുനൂറിലേറെയാണ് പത്തനംതിട്ട വയനാട് ഇടുക്കി ജില്ലകളിൽ നൂറിലേറെ ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചു

ദേദ കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ച വടകര മത്സ്യമാർക്കറ്റും ക്രമസമാധാന പ്രശ്നത്തിൽ അടച്ച പേരാമ്പ്ര മത്സ്യമാർക്കറ്റും കർശന ഉപാധികളോടെ തുറക്കാൻ ജില്ലാ കലക്ടർ അനുമതി നൽകി കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് വരുന്നവർക്ക് മാർക്കറ്റിൽ പ്രവേശനം ഉണ്ടാവില്ല ആഴ്ച്ചയിൽ ഒരു തവണ മാർക്കറ്റിൽ ആരോഗ്യ പരിശോധനയും നടത്തണം

പത്ത് ജയിൽ ജീവനക്കാരും ഇവരിൽ ഉൾപ്പെടുന്നു

ദേദ ബീഹാറിലെ ചരിത്ര പ്രധാനമായ കോസി റെയിൽപാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഇന്ന് നാടിന് സമർപ്പിക്കും

ദേഴ ശിരോമണി അകാലിദൾ നേതാവും കേന്ദ്ര ഭക്ഷ്യ സംസ്ക്കരണ മന്ത്രിയുമായ ഹർസിമ്രത് കൌർ പ്രധാനമന്ത്രിക്ക് രാജിക്കത്ത് നൽകി കാർഷികോൽപ്പന്ന വാണിജ്യ ബില്ലിൽ പ്രതിഷേധിച്ചാണ് രാജി നൽകിയതെന്നാണ് റിപ്പോർട്ട് എൻഡിഎയിൽ തുടരുമെന്നും കേന്ദ്ര ഗവൺമെന്റിന് പുറമെ നിന്നും പിന്തുണ നൽകുമെന്നും ശിരോമണി അകാലിദൾ അറിയിച്ചിട്ടുണ്ട്

കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യം യോഗത്തിൽ ചർച്ചയാകും കോവിഡ് സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് എത്ര കാലം നീട്ടണമെന്ന കാര്യം സർവ്വകക്ഷി യോഗം ചർച്ച ചെയ്യും ദരര കോവിഡ് കാലത്തെ സമരങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സംസ്ഥാനത്ത് ആൾക്കൂട്ട സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്ന് ഹർജിക്കാർ പറയുന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സമരങ്ങളിലെ ആക്രമണ ദൃശ്യങ്ങൾ ഹർജിക്കാർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്

ഹൈവേ പൂർത്തിയാകുന്നതോടെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളായ തേക്കടി വാഗമൺ രാമക്കൽമേട് മൂന്നാർ എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താനാകും

സുധാകരൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു

പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിന് നിതിൻ ഗഡ്ഗരി രേഖാമൂലം മറുപടി നൽകി

ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ സമരം ശക്തമാക്കുമെന്ന് അറിയിച്ചു യുവമോർച്ച യൂത്ത് കോൺഗ്രസ് മഹിളാ മോർച്ച എന്നീ സംഘടനകൾ ഇന്നും സംസ്ഥാനത്ത് പ്രക്ഷോഭ പരിപാടികൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നലെ പാലക്കാട്ടും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും നടന്ന സമരത്തിൽ സമരക്കാർക്കും പൊലീസുകാർക്കും പരിക്കേറ്റിരുന്നു

എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും മന്ത്രി കെ

ജലീലിനെതിരായ സമരം സ്വർണക്കടത്ത് കേസ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്നിവ യോഗം ചർച്ച ചെയ്തേക്കും വൈകീട്ട് എൽ ഡി എഫ് യോഗവും തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ദേദ ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാക് സേനയുടെ ഷെൽ ആക്രമണത്തിൽ വീരമൃത്യുവരിച്ച ജവാൻ കൊല്ലം ഇട്ടിവ സ്വദേശി അനീഷ് തോമസിന്റെ ഭൌതിക ശരീരം സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു മണ്ണൂർ മാർത്താസ്മുനി കത്തോലിക്ക ചർച്ചിലെ സംസ്ക്കാര ചടങ്ങിൽ മുഖ്യമന്ത്രിക്കും ജില്ലാ കലക്ടർക്കും വേണ്ടി മുതിർന്ന ഉദ്യോഗസ്ഥർ പുഷ്പ ചക്രം അർപ്പിച്ചു രുര കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് കാലവർഷത്തിന് ശേഷം നീക്കിയേക്കുമെന്ന് സൂചന ലഭിച്ചു മ മലബാറിലെ എംപിമാർ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറലുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തി

വി സീരിയൽ താരം ശബരീനാഥ് തിരുവനന്തപുരത്ത് നിര്യാതനായി

വൈകീട്ട് ഷട്ടിൽ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ ശബരീനാഥിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല